നരേന്ദ്രമോദി സംസ്ഥാനത്ത്

ശേഷിക്കെ സംസ്കൂർനുത്ത് ആവേശകരമായ പ്രചാരണം പ്രീ പോൾ സർവേകൾ നിർത്തിവയ്ക്കണമെന്ന് ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി

എ പ്രചാരണത്തിന് ഊർജ്ജം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി

കേരളത്തിൽ ഫിക്സഡ് മത്സരമാണെന്ന് ശ്രീ

അഞ്ച് വർഷം മാറി മാറി ഇരുമുന്നണികളും ജനങ്ങളെ വഞ്ചിക്കുന്നു കേരളത്തിലെ ചെറുപ്പക്കാർ ബിജെപിയ്ക്കൊപ്പമാണ് അഴിമതി ജാതീയത വർഗ്ഗീയത സ്വജനപക്ഷപാതം ക്രിമിനൽവൽക്കരണം തുടങ്ങി അഞ്ച് വെല്ലുവിളികളെ രാജ്യം നേരിടുന്നു ബിജെപി കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കും

കേരളത്തിന് ഫാസ്റ്റ് എന്ന വികസന മുദ്രാവാക്യം പ്രധാനമന്ത്രി മൂന്നോട്ടുവച്ചു കിസാൻ ക്രഡിറ്റ് കാർഡ് കർഷകർക്കും മൂസ്യത്തൊഴിലാളികൾക്കും നൽകും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവർ ഇന്ന് സംസ്ഥാനത്ത് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നു പ്രിയങ്കാ ഗാന്ധി ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർകോട് കണ്ണൂർ ജില്ലകളിലാണ് പ്രചാരണം നടത്തുന്നത്

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് എന്നിവരും സംസ്ഥാനത്ത് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഉമ്മൻചാണ്ടി വയനാട് കോഴിക്കോട് മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത്

എഫ് അനുകൂല ജനവികാരമാണു ള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

നേമത്ത് കഴിഞ്ഞ തവണ ബിജെപി തുറന്ന അക്കൌണ്ട് ഇത്തവണ ക്ലോസ് ചെയ്യും ബിജെപിയുടെ വോട്ട് വിഹിതം കുറയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയതിന് ജോയ്സിനെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹ്ം ആവശ്യപ്പെട്ടു രാഹുൽഗാന്ധിയ്ക്കെതിരെ ്അ്ധിക്ഷേപകരമായ പരാമർശം നടത്തിയ ജോയിസ് ജ്വേർജിനെതിരെ നിയമനടപടി സ്വീകരിക്കണമെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആവശ്യപ്പെട്ടു അതേസമയം ജോയ്സ് ജോർജ്ജിന്റെ വീട്ടിലേയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തും

രാഷ്ട്രീയപരമായാണ് അദ്ദേഹത്തെ എതിർക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇരട്ടയാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംബന്ധിക്കവേ ജോയിസ് ജോർജ് രാഹുൽഗാന്ധിയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ജെ ജോസഫ് ജോയിസ് ജോർജിന്റേത് പകതയില്ലാത്ത വില കുറഞ്ഞ പരാമർശമെന്ന് കേരളാ കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് ജോയ്സിന്റെ പരാമർശം എൽ

എഫിന്റെ അഭിപ്രായമാണോ എന്നും വൃക്തമാക്കണം

മണി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക മാത്രമാണ് ജോയിസ് ജോർജ് ചെയ്തതെന്ന് മന്ത്രി എം

സ്ത്രീവിരുദ്ധ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ജില്ലകളിലൂടെ

ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞുള്ള സർവേകൾ അധാർമ്മികമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഡി എഫിന് വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന സർവേകളാണ് പുറത്തുവന്നിട്ടുള്ളതെന്ന് കരുതുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം യു ഡി

ആർ പരിപാടികളാണെന്ന് യു ഡി

സർക്കാരിനെതിരെ യു ഡി എഫ് ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ ജനങ്ങൾക്കറിയാം ഭരണ്ണമാറ്റം ഉണ്ടാകുമെന്നും ഹസ്സൻ പറഞ്ഞു

ഡി എ കാഴ്ചവയ്ക്കുട്ടുമെന്ന് ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു

എഫ് സ്ഥാനാർഥി പ്രൊഫസർ കെ ഐ

ഇന്നലെയാണ് രോഗം സ്ഥിരീകരിച്ചത് ആദ്യ ടെസ്റ്റ് നെഗറ്റീവായിരുന്നു രണ്ടാമത്തെ ആർ

കൂടുതൽ വിവരങ്ങ്ളുമായി ലക്ഷദ്വീപിൽ നിന്നും ആകാശവാണ്ണി പ്രപ്തിനിധി അബ്ദുൾ സലാം

എന്നാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസമില്ല കേരളത്തിൽ ഇന്നും മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

സംസ്ഥാനത്തു സ്വർണവിലയിൽ വീണ്ടും ഇടിവ്